ലഭിക്കുന്ന സംഭാവനകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്ന് സുപ്രീംകോടതി

ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിച്ച് വയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചാണ് ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ സാധുത ചോദ്യം ചെയ്ത് ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് ഒന്നുകിൽ സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് സംവിധാനം സ്റ്റേ ചെയ്യുക എന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം കഴിഞ്ഞവർഷം ജനുവരി രണ്ടിനാണ് കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി വിജ്ഞാപനം ചെയ്തത്

ഒറ്റപ്പെട്ട അക്രമസംഭവങ്ങളൊഴിച്ചാൽ ഒന്നീട് ഘട്ട വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു

വൈകിട്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കരിപ്പൂരെത്തുന്ന പ്രധാനമന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യും

ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി സുധാകർ റെഡ്ഡി അടക്കമുള്ള ദേശീയ നേതാക്കൾ സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ണൂർ ജില്ലയിലെ ഭൂരിഭാഗം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ഇന്ന് വൈകുന്നേരത്തിനകം ഇരുവരോടും നോട്ടീസിന് മറുപടി നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മത സാമുദായിക വികാരങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞദിവസം മീററ്റിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെ യോഗി ആദിത്യനാഥ് ഈ നിർദ്ദേശം ലംഘിച്ചതായി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത് ഈമാസം ഏഴാം തീയതി ഷരൺപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മായാവതി പെരുമാറ്റം ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബഞ്ചാണ് കേസിൽ വാദം കേൾക്കുക പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുംവരെ സിനിമ റിലീസ് ചെയ്യരുതെന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത്

സാമ്പത്തിക ചോർച്ച തടയുന്നതിന് ബാങ്കുകൾ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു രാജൃത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ബാങ്കുകൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യത്ത് ബാങ്കുകൾ ധ്രുതഗതിയിലാണ് വളർച്ച കൈവരിക്കുന്നതെന്നും ശ്രീ എം വെങ്കയ്യനായിഡു പറഞ്ഞു

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വിദേശ മന്ത്രാലയതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി എ

ബിൽ പാസായാൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് നൽകുന്ന പരിഗണനയായിരിക്കും ഇന്ത്യയ്ക്ക് ലഭിക്കുക പ്രതിരോധ രംഗത്ത് ഇന്ത്യയ്ക്ക് അമേരിക്കയിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ ലഭിക്കാൻ ബിൽ ഇടയാക്കും

പൂഞ്ച് ജില്ലയിലെ അതിർത്തി രേഖയ്ക്ക് സമീപം യാതൊരു പ്രകോപനവും കൂടാതെ പാകിസ്ഥാൻ സൈനൃം ഷെല്ലാക്രമണം നടത്തി ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യംവച്ചായിരുന്നു ആക്രമണം ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവയ്പ് തുടരുകയാണ്

കൊൽക്കത്തയിൽ രാത്രി എട്ടു മണിക്കാണ് മത്സരം കഴിഞ്ഞ രാത്രി ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി

ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കലമെഡൽ നേടിയ താരം സൈനാ നെഹ്വാൾ രണ്ടാം സീഡ്സ് താരം ജപ്പാന്റെ നൊസോമി ഒക്കുഹരയുമായി ഇന്ന് മത്സരിക്കും

സ്വർണവില കുറഞ്ഞു